വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും

ബി എസ്

ഇന്ന് വാഷിംഗ്ടണിൽ തുടക്കം

കേന്ദ്ര അനുമതി

ഇന്ന് വിശാഖപട്ടണത്ത്

സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അഞ്ച് മണ്ഡലങ്ങളിൽ വൈകിട്ട് മൂന്നുമണിക്ക് പ്രചാരണം തീരും മറ്റുള്ളിടത്ത് അഞ്ചു മണിക്കും അവസാനിക്കും

ജെ പി കോൺഗ്രസ് ജെ എം എം തുടങ്ങിയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ ഇന്ന് പ്രചാരണത്തിനെത്തുന്നുണ്ട്

പ്രതിപക്ഷ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ്ലപ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ചാനലിനോട് ക്ടിത്രിക്രിക്കുകയായിരുന്നു അമിത് ഷാ നിയമം പിൻവലിക്കാനുള്ള ഒരു സാഹ്റ്ച്ച്ര്യവുമില്ല പൌരത്വ നിയമം ഒരു പൌരനും നീതി നിഷേധിക്കില്ല വൃഷ്ടയുത്തിൽ കോൺഗ്രസ്സ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുകയാണ് നിയമത്തിനെതിരെ എത്ര എതിർപ്പിച്ച പ്രക്കടിപ്പിച്ചാലും ഏഴ് വർഷമായി മതവിവേചനം നേരിടുന്ന അഭയ്ാർത്ഥികൾക്ക് പൌരത്വം നൽകി ആത്മാഭിമാനമുള്ള ജീവിതച്ച് ഉറ്റപ്പുവരുത്താൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ീശ്രീക്അമിത് ഷാ പറഞ്ഞു രാജ്യമില്ലാത്തവരെ ശാക്തീകരിക്കാനുള്ളതാണ് പ്ൌരത്വ നിയമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കോൺഗ്രസ് അദ്ധ്യക്ഷ സോണിയാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതിനായി രാഷ്ട്രപതിക്ക് നിവേദനം സമർപ്പിച്ചു സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നും ജാമിയ മിലിയയിൽ ഉണ്ടായ പൊലീസ് നടപടികൾ ആശങ്കാജനകമാണെന്നും സോണിയ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു ജനങ്ങളുടെ ശബ്ദം കേന്ദ്രഗവണ്മെന്റ് അടിച്ചമർത്തുകയാണെന്നും അവർ ആരോപിച്ചു

ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ടി

സി നേതാവ് ഡെറിക് ഒബ്രിയൻ സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് ഡിഎംകെ നേതാവ് റ്റി

ബാലു ആർ

ഡി നേതാവ് മനോജ് ഝാ സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ എന്നിവരാണ് പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നത്

ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന നില ഇരുവരും വിലയിരുത്തി പൌരത്വ നിയമത്തിനെതിരെ രൂക്ഷമായ പ്രതിഷേധങ്ങൾ ഉയർന്ന സീലാംപൂരിൽ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണ്

അറസ്റ്റിലായവർക്ക് കുറ്റകൃത്യ പശ്ചാത്തലമുണ്ട് ആരും വിദ്യാർത്ഥികളല്ല് സമാധാനം പാലിക്കാനും കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചു

ഇന്ത്യൻ റെയിൽവെയും സംസ്ഥാന അപ്പ്ൻമെന്റും ചേർന്ന് രൂപീകരിച്ചു കെ

തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ നിലവിലുള്ള പാതയിൽനിന്ന് മാറിയാണ് നിർദ്ദിഷ്ട റെയിൽ ഇടനാഴി നിർമിക്കുന്നത്

റെയിൽ ഇടനാഴി നിർമാണത്തിലൂടെ അരലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് ലഭിക്കുക

ഗുവാഹത്തിയിൽ നിരോധനാജ്ഞ പിൻവലിച്ചു ദിബ്രൂഗഡിൽ പകൽ നിരോധനാജ്ഞയും നീക്കി സംഘർഷങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് സംസ്ഥാന ഗവൺമെന്റ് കൈമാറിയിട്ടുണ്ട്

തലസ്ഥാനമായ ഷില്ലോങ്ങിൽ കൊടുംതണുപ്പിലും ജനങ്ങൾ ദേവാലയങ്ങളിൽ പോകുന്നതിനും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കുമായി പുറത്ത് ഇറങ്ങിത്തുടങ്ങി സംസ്ഥാനത്തെ നിരോധനാജ്ഞയിൽ ഇന്നലെ പകൽ ഇളവ് അനുവദിച്ചിരുന്നു

ബി എസ്

സെക്കന്ററി സീനിയർ സെക്കന്ററി തലങ്ങളിലാണ് സി ബി എസ്

നികുതി വരുമാനം വർദ്ധിപ്പിക്കാനായി ് നികുതിപിരിവ് ഘടന കൌൺസിൽ പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അദ്ധ്യക്ഷതയിലാണ് കൌൺസിൽ ചേരുന്നത്

ന്യൂഡൽഹിയിൽ ഇന്നലെ ഫാസ്ടാഗ് ബോധവൽക്കരണ സന്ദേശം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി പുതിയ സംവിധാനം ഗതാഗത സ്തംഭനം കുറയ്ക്കുന്നതും മലിനീകരണം നിയന്ത്രിക്കുന്നതുമാണ് ഇന്ധന നഷ്ടവും കുറയ്ക്കും ഒരു കോടിയോളം ഫാസ്ടാഗുകൾ വിതരണം ചെയ്തുവെന്നും ശ്രീ

പ്രാദേശിക അന്തർദ്ദേശീയ വിഷയങ്ങളിലെ ആശയ കൈമാറ്റത്തിന് ചർച്ച വഴിയൊരുക്കും

വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങും ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യും സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പെർ എന്നിവരാണ് അമേരിക്കയെ നയിക്കുക ചർച്ചയ്ക്കിടെ സുപ്രധാനങ്ങളായ ചില കരാറുകൾ ഒപ്പുവയ്ക്കാനും സാധ്യതയുണ്ട്

കരാർ വഴി അമേരിക്കൻ പ്രതിരോധ വ്യാവസായിക ഉത്പാദകർക്ക് ഇന്ത്യയിലെ സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകും ഇന്ത്യയും അമേരിക്കയും തമ്മിലെ മന്ത്രിതല്പ് സ്മ്മേളനം പ്രതിരോധം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങൾക്കുമിടെ ഉന്നതതല നയതന്ത്ര സംവിധാനത്തിന് രൂപം നൽകുമെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതി ഹർഷ് വർദ്ധൻ ശ്രിങ്കല അഭിപ്രായപ്പെട്ടു

തെരഞ്ഞെടുത്ത രാജ്യങ്ങളിലെ മതപരമായി പീഢിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നല്കാൻ ഉദ്ദേശിച്ചുള്ള നിയമത്തിനെ പ്രമേയം മനപൂർവ്വം തേജോവധം ചെയ്യുന്നതായും വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ വൃക്തമാക്കി ഒരു ഇന്ത്യാക്കാരന്റെയും പൌരത്വം നിയമത്തിലൂടെ ഇല്ലാതാവില്ലെന്നും മന്ത്രാലയം പ്രസ്താവിച്ചു പാകിസ്ഥാനിൽ മത ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വിടാനുള്ള ശ്രമമാണ് ഈ പ്രമേയം പാകിസ്ഥാനിലെ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് തുടങ്ങിയ മതന്യൂനപക്ഷങ്ങളുടെ കുറഞ്ഞു വരുന്ന എണ്ണം ഇതിന് തെളിവാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി

കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രീൻ അപ് കൌണ്ടി കെന്റക്കി തുടങ്ങിയ ഇടങ്ങളിൽ രാത്രി തുടരെ പെയ്ത കനത്ത മഴ വെള്ളപ്പൊക്കത്തിനിടയാക്കി

ഇന്നലെ വൈകിട്ട് നടന്ന അവസാന റൌണ്ട് റോബിൻ മത്സരത്തിൽ ആതിഥേയർ തായ്ലന്റിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി നാളെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ സ്വീഡനെ നേരിടും

ചെന്നൈയിൽ നടന്ന ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനായിരുന്നു വിജയം

കഴിഞ്ഞ രാത്രി പൂനെയിലായിരുന്നു അന്ത്യം

സ്വാതന്ത്ര്യാനന്തര മഹാരാഷ്ട്രയിലെ ചലച്ചിത്ര വികസനത്തിന് ഏറെ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം നട്സമ്രാട്ട് ഹിമാലയാച്ചി സാവോലി തുടങ്ങിയ ആദ്യകാല മറാത്തി നാടകങ്ങളിലേയും പിഞ്ച്റ എന്ന സിനിമയിലേയും വേഷങ്ങൾ ശ്രീറാമിനെ ശ്രദ്ധേയനാക്കി